കരസേനയുടെ പ്രത്യേക് യോഗം ശ്രീനഗറിൽ ചേർന്നു

സംഭവിച്ചിട്ടില്ലെന്ന് കേരള പി എസ്

പരമ്പര തൂത്തുവാരാൻ ഇന്ത്യ

കേന്ദ്ര ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് അവകാശംഉണ്ടെന്ന്അദ്ദേഹം ് പറഞ്ഞു

ചർച്ചയ്ക്കിടെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളംവച്ചു

ഭരണപ്രദേശമാക്കിമാറ്റുന്നത്ചരിത്രത്തിലാദൃത്തെ സംഭവമാണെന്ന്അദ്ദേഹംചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെഫെഡറൽസംവിധാനത്തിന് നേരെയുള്ളഏറ്റവുംവലിയവെല്ലുവിളിയാണ്ടെന്നുംഅ്ദ്ദേഹംആരോപിച്ചു ലോക് സഭാംഗംകൂടിയായ ഫറൂഖ്അബ്ദുള്ളയെകുറിച്ച്യാതൊരുവീപ്രുവു്ംഇല്ലെന്നുംഅംഗങ്ങളുടെസുര ക്ഷ സ്പീക്കറുടെഉത്തരവാദിത്ഥാണെന്നുംഡി

അംഗംദയാനിധി മാരൻ പറഞ്ഞു

ഇത് സംബന്ധിച്ച പ്രമേയത്തിന് രാജ്യസഭ ഇന്നലെ അംഗീകാരം നൽകി

ജമ്മുകാശ്മീർ ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണപ്രദേശങ്ങളായി സംസ്ഥാനത്തെ വിഭജിക്കാൻ ബിൽ ജമ്മുകാശ്മീർ പ്രത്യേക നിയമസഭയുളള ലക്ഷ്യമിടുന്നു കേന്ദ്രഭരണപ്രദേശമായും ലഡാക്കിനെയും നിയമസഭയില്ലാത്ത കേന്ദ്രഭരണപ്രദേശമായും ബിൽ വ്യവസ്ഥചെയ്യുന്നു

ഹരിയാന നിയമസഭ കേന്ദ്രഗവൺമെന്റിന് നന്ദി അറിയിച്ച് പ്രമേയം പാസാക്കി

പ്രതാപനും ഹൈബി ഈഡനും ലോക്സഭ സ്പീക്കർ ഓം ബിർളയുടെ താക്കീത് രാപ്പില്ലെ സ്പീക്കറുടെ ചേംബറിൽ വിളിച്ച് വരുത്തിയാണ് താക്കീത് ചെയ്തത്

വടക്കൻ കമാന്റ് ജനറൽഓഫീസർകമാന്റിംഗ് ഇൻ ചീഫ്ലഫ്റ്റനന്റ് ജനറൽ രൺബീർസിംഗിന്റെ അധ്യക്ഷതയിലാണ്യോഗം ശ്രീനഗറിലെസൈനീക നടപടികൾക്കുള്ളഇൻ്റലിജൻസ് മറ്റ്സുരക്ഷാ ഏജൻസികൾഎന്നിവയുടെമുന്നൊരുക്കങ്ങൾ ജമ്മുകാശ്മീരിൽ സമാധാനവുംസുരക്ഷയുംഉറപ്പാക്കുന്നതിനാവശ്യമായഎല്ലാ നടപടികളുംസ്വീകരിച്ചതായിലഫ്റ്റനന്റ് ജനറൽ രൺബീർസിംഗ്അറിയിച്ചു

സൈന്യത്തിന്റെ നോർത്തേൺ കമാന്റ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ രൺബീർ സിങ് ഇന്നലെ രാത്രി ഗവർണ്ണറെ സന്ദർശിച്ച് വിശദീകരിച്ചു

കേസിൽ മധ്യസ്ഥ ശ്രമം പരാജയപ്പെട്ടതിനെ ത്രൂടർന്നാണിത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അദ്ധ്യക്ഷതയിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് കേസ് പരിഗണിക്കുന്നുത് ജസ്റ്റിസുമാരായ എസ്

വൈ ചന്ദ്രചൂഢ് അശോക് ഭൂഷൻ എസ്

നസീർ എന്നിവർ ഈ മാസം രണ്ട്ടിന് മധ്യസ്ഥ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചിരുന്നു

ഡൽഹിസക്കീർ നഗറിലെ പാർപ്പിടസമുച്ചയത്തിന് അർധരാത്രിയാണ് തീ പിടുത്തമുണ്ടായത്

പത്തോളം പേർക്ക് പരിക്കേറ്റു

സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തിയതായും ഇതുസംബന്ധിച്ച റിപ്പോർട്ട് കമ്മീഷൻ വിശദമായി പരിശോധിച്ചതായും അദ്ദേഹം പറഞ്ഞു

ബഷീറിന്റെ മരണത്തിനിടയാക്കിയ കാർ അപക്ടിത്തീൽ ജൂഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ശ്രീറാം വെങ്കിട്ടരാമനെ കസ്റ്റഡിയിൽ പിട്ടുകിട്ടണമെന്ന പോലീസിന്റെ അപേക്ഷ കോടതി തള്ളി തിരൂപിനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ്സ് മജിസ്ട്രേറ്റ് കോടതിയാണ് ക്കേസിൽ ഇന്ന് വാദം കേട്ടത്

സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെട്ട് ദുഖത്തിൽ പങ്ക് ചേരുന്നുവെന്നും ഗുട്ടെരെസ് പറഞ്ഞു

രാജ്യത്തെ ഓഹരിവിപണിയിൽ നേട്ടം

പരമ്പര ഉറപ്പിച്ചതോടെ ഇന്ന് ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ബാറ്റിംഗിൽ കെ

ഓപ്പണർമാരായ രോഹിത് ശർമ ശിഖർ ധവാൻ എന്നിവരിൽ ഒരാൾ മാറി നിൽക്കാൻ ഇടയുണ്ട് ബൌളിംഗിൽ പേസ് ബൌളർ ദീപക് ചഹാറും അർധ സഹോദരൻ രാഹുൽ ചഹാറും കളിച്ചേക്കും